കോടി കടന്നു കേര്ളത്തിൽ കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി

കേരളത്തിൽ എസ് എസ് എൽ സി

പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം

ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കും

ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ അടിയന്തിര പ്രതിരോധ നടപടികൾ യോഗം പരിശോധിക്കും

നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ കോവിഡ് സ്ഥിതി വിലയിരുത്തിയത് കോവിഡ് വ്യാപനം തടയാനും പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താനും പ്രധാനമുന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

വാക്സിൻ വിതരണത്തിന് രാജ്യമൊട്ടാകെ വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കോവിഡ് പ്രതിരോധത്തിനുള്ള പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്

മഹാരാഷ്ട്രയിലേക്ക് ഇതിനകം ഒരു കോടി ആറ് ലക്ഷം ഡോസ് പ്രതിരോധ മരുന്ന് എത്തിച്ചിട്ടുണ്ട് വാക്സിനേഷൻ വേഗത്തിലാക്കാനുള്ള നടപടികളെടുക്കണമെന്ന് സംസ്ഥാന ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ്ം ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹി എയ്യിംസിൽ രാവിലെയാണ് പ്രധാനമന്ത്രി വാക്സിൻ സ്വീകരിച്ചത് കോവിഡ് രോഗബാധക്കെതിരായ പ്രധാന മാർഗ്ഗ്ഗ്നിർദ്ദേശങ്ങളിൽ ഒന്നാണ് വാക്സിനേഷനെന്ന് ശ്രീ

പ്രതിരോധ മരുന്നിന് അർഹരായ എല്ലാവ്രും എത്രയും വേഗം വാക്സിൻ എടുക്കണമെന്നും

മാർച്ച് ഒന്നിനാണ് വാക്സിന്റെ ആദ്യ ഡോസ്സ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്

തുടർന്ന് കോവിഡ് മുന്നണി പോരാളികൾക്ക് ഫെബ്രുവരി രണ്ട് മുതൽ വാക്സിൻ നൽകി തുടങ്ങി

എസ്

സി പ്ലസ്ടു പരീക്ഷകൾ ആരംഭിക്കുന്നതും കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി കോവിഡ് രോഗ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടതും കോവിഡ് പരിശോധന നടത്തേണ്ടതുമാണ്

മൂന്നു കോടിയിലധികം പേരിൽ രോഗബാധയുണ്ടായ അമേരിക്കയാണ് മുന്നിൽ

ഗുരു തേജ് ബഹാദൂറിന്റേ ഓർമ്മയ്ക്കായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീളുന്ന പരിപാടികളെ കുറിച്ച് യോഗം ചർച്ചു ചെയ്യും കേന്ദ്രമന്ത്രി അമിത് ഷാ യോഗത്തിൽ പങ്കെടുക്കും

വീഡിയോ കോൺഫറൻസിംഗിലൂടെ സെഷേൽസ് ഇന്ത്യൻ സഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾ ഇരു നേതാക്കളും ഉദ്ഘാടനം ചെയ്യും ഇന്തോ പസഫിക് വികസന സഹായത്തിന്റെ ഭാഗമായാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് സെഷേൽസിന്റെ പുതിയ മജിസ്ട്രേറ്റ് കോടതി മന്ദിരം പുതിയ നാവിക കപ്പൽ ഒരു മെഗാവാട്ട് സൌരോർജ്ജ ്പ്ലാന്റ എന്നിവ ഇവയിൽ ഉൾപ്പെടും

വിമോചന പോരാട്ടത്തിലെ രക്തസ്ാക്ഷികൾക്ക് കരസേനാ മേധാവി ആദരാഞ്ജലികൾ അർപ്പിക്കും തുടർന്ന് ബംഗ്ലാദേശ് സായുധ സേനയിലെ മൂന്ന് വിഭാഗ്ങ്ങളുടെയും മേധാവികളുമായി ജനറൽ നരവാനെ കൂടിക്കാഴ്ച്ച് നടത്തും ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ സ്മാരക മ്യൂസിയത്തിലും കരസേനാ മേധാവി സന്ദർശനം നടത്തും

വോയ്സ് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മിരീന്റെ നിലവിലെ ടൂറിസം സാധ്യതകൾ പരിശോധിക്കാനും പ്രയോജനപ്പെടുത്താനുമാണ് കേന്ദ്രം പരിപാടികൾ തയ്യാറാക്കുന്നത്

സംഘം സംസ്ഥാനത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായും സ്ഥാപനങ്ങളുമായും ആശയവിനിമയം നടത്തും ടൂറിസം കശ്മീരിലെ പ്രധാന വരുമാന മാർഗ്ഗമായ സാഹചര്യത്തിൽ ടുലിപ്പ് ഗാർഡൻ സന്ദർശിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ടൂറിസം രംഗത്തെ മികച്ച ചുവടുവയ്പ് എന്ന നിലയിൽ ജമ്മുകശ്മീർ ടൂറിസം അസോസിയേഷൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് എൽ

എസ് എൽ സി പ്തസ് ടു പരീക്ഷകൾ എഴുതുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷ

ജില്ല കലക്ടർ ടി

സിറ്റി പൊലീസ് കമ്മീഷണർ ആർ ഇളങ്കോ റൂറൽ എസ്

നവനീത് ശർമ്മ എന്നിവരും വിവിധ രാഷട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്

വിപ്ലവകാരിയായിരുന്നു മംഗൾ പാണ്ഡെയെന്ന് ശ്രീ ജാവ്ദേക്കർ ടിറ്ററിൽ കുറിച്ചു ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജിക്കും ചരമവാർഷിക ദിന്ത്തിൽ ശ്രീ ജാവ്ദേക്കർ പ്രണാമം അർപ്പിച്ചു